പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവ്വഹിക്കും

തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ച് മന്ത്രിസഭാ യോഗം

വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി

ഉദ്യോഗാർത്ഥികൾ ഇന്നുമുതൽ ഉപവാസ സമരത്തിലേക്ക്

എസ്

ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി

ദേശീയ സൌരോർജ്ജ മിഷനു കീഴിൽ നിർമ്മിച്ച കാസർകോട് സൌരോർജ്ജ പദ്ധതിയും പ്രധാന മന്ത്രി രാജൃത്തിന് സമർപ്പിക്കും അടിയന്തിര സാഹചര്യങ്ങളിൽ സംയോജിത പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിനായി തിരുവനന്തപുരത്ത് ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആന്റ് കൺട്രോൾ സെന്ററിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും

ഒട്ടനവധി തീരുമാനങ്ങളും ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം കൈക്കൊണ്ടു

കിഫ്ബി വായ്പയിൽ പുതിയ ബസുകൾ നിരത്തിലിറക്കുന്നതിനും ദീർഘദൂര സർവീസുകൾക്കുമായി കെ എസ്

ടി സി സ്വിഫ്റ്റ് എന്ന സ്വതന്ത്ര കമ്പനി രൂപീകരിക്കാൻ മന്ത്രിസഭ അനുമതി നൽകി സർക്കാർ ഐ

അഴിമതി മുക്ത കേരളത്തിനായി ആരംഭിക്കുന്ന ജനജാഗ്രത വൈബ്സൈറ്റിലൂടെ പൊതുജനങ്ങൾക്ക് അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ നൽകാനാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

പിഎസ് സി ലിസ്റ്റ് ഇല്ലാത്ത ഇടങ്ങളിൽ വർഷങ്ങളായി തൊഴിലെടുത്തവരെ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചത് എന്നാൽ സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്തു എന്ന പ്രതീതിയാണുണ്ടായത് ബോധപൂർവം സർക്കാരിന്റെ നീക്കങ്ങളെ കരിവാരിത്തേക്കാൻ ചിലർ ശ്രമിക്കുമ്പോൾ അവർക്ക് അവസരം ഉണ്ടാക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് താൽക്കാലിക നിയമനങ്ങളിലെ സ്ഥിരപ്പെടുത്തൽ നിർത്തിവച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടത്തണമെന്നാ വശ്യപ്പെട്ട് സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്നുമുതൽ ഉപവാസ സമരം ആരംഭിക്കും മന്ത്രിമാർ ഉദ്യോഗസ്ഥർ തുടങ്ങി ആരുമായും തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഉദ്യോഗാർത്ഥികൾ അറിയിച്ചു

ഉദ്യോഗാർത്ഥികളുടെ സമരത്തിനിടയിൽ രാഷ്ട്രീയ ഉദ്ദേശൃത്തോടു കൂടി ചിലർ കടന്നു കയറിയിട്ടുണ്ടെന്നും സമാധാനപരമായി സമരം ചെയ്യുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ഡി

എഫ് ഐ

ഗ്രാമ പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പഞ്ചായത്തിനാണ്

മികച്ചു ബ്ലോക്ക് പഞ്ചായത്തായി കൊല്ലം ജില്ലയിലെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നേടി ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനാണ് രണ്ടാം സ്ഥാനം കൊല്ലം ജില്ലാ പഞ്ചായത്തിനും മൂന്നാം സ്ഥാനം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനുമാണ്

വിജയരാഘവൻ

അഗളി കേന്ദ്രമായാണ് നിർദ്ദിഷ്ട അട്ടപ്പാടി താലൂക് നിലവിൽ വരിക

രാവിലെ ഏഴ് മണിമുതൽ വൈകുന്നേരം ഏഴ് മണി വരെയുള്ള ജോലിസമയം എട്ട് മണിക്കൂറായി നിജപ്പെട്ടുത്തിയിട്ടുണ്ട് ഇന്ധനവില രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ

ശ്രീധരൻ ബി ജെ പിയുമായി സഹകരിക്കുമെന്നും പാർട്ടി അംഗമാകുമെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു ഇരുമുന്നണികൾക്കും എതിരെ ബദൽ രാഷ്ട്രീയം ഉയർത്തി കൊണ്ടുവരുമെന്നും ഇതിനായി പ്രമുഖ വൃക്തിത്വങ്ങളെ രംഗത്തിറക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇക്കുറി ചടങ്ങുകൾ നടക്കുന്നത്

രവികുമാർ

ബി ഇടുക്കി രാജകുമാരി കെഎസ്ഇബി സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി എം

തിലോത്തമൻ സംസ്ഥാനത്തെ എല്ലാ ഗ്രാമ പ്പഞ്ച്ചായത്തുകളിലും സപ്തൈകോ സൂപ്പർ സ്റ്റോറുകൾ യാഥാർത്ഥ്യമായെന്ന് ഭക്ഷ്യ പൊതു വിതരണ വകുപ്പ് മന്ത്രി പി

വെങ്ങപ്പള്ളിയിൽ പ്രവർത്തനമാരംഭിക്കുന്നു് സ്ത്രൈകോ മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവ്വഹിച്ച് സംസാരിക്കുക യായിരുന്നു അദ്ദേഹം

ഡി ജെ എസ് സംസ്ഥാന പഠനശിബിരം ഇന്ന് ആലപ്പുഴയിൽ നടക്കും

ജെ

നേതാവ് കുമ്മനം രാജശേഖരൻ ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുക്കും

എല്ലിൽ ഗോവ ഒഡീഷ മത്സരത്തിൽ ഗോവ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു